എം ബഷീർ കൊല്ലപ്പെട്ട കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന്റെയും വഫ ഫിറോസിന്റെയും ഡ്രൈവിംഗ് ലൈസൻസ് ഇന്നു തന്നെ റദ്ദാക്കുമെന്ന് മന്ത്രി എ

എസ് ആർ ഒ അധികൃതർ അറിയിച്ചു ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് കഴിഞ്ഞ ബുധനാഴ്ച യാണ് പേടകം ചന്ദ്രനിലേക്ക് യാത്ര തുടങ്ങിയത് ചന്ദ്രനിലേക്ക് അടുക്കും തോറും അസാധാരണ വേഗത്തിൽ കുതിക്കുന്ന പേടകത്തെ നിയന്ത്രിച്ച് ചാന്ദ്രപഥത്തിലെത്തിക്കുന്ന സങ്കീർണ്ണമായ ഘട്ടമാണ് നാളെ നടക്കുക നാസ യുടെയും റഷ്യയുടെയുമടക്കം പല ചാന്ദ്രദൌത്യങ്ങളും പരാജയപ്പെട്ടത് ഈ ഘട്ടത്തിലാണ് ബംഗളുരുവിലെ ഐ എസ് ആർ ഒ കേന്ദ്രം നൽകുന്ന സന്ദേ ശങ്ങൾ കൃത്യമായി സ്വീകരിച്ച് പേടകം പ്രവർത്തിക്കുന്നതിനാൽ സങ്കീർണ്ണ മായ ഈ ഘട്ടത്തെയും കടക്കാനാവുമെന്ന് വി

സി ഡയറക്ടർ ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞു

പി വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ ഹൈദ രാബാദിൽ കുറ്റപ്പെടുത്തി

പി സംഘ ടിപ്പിച്ച യോഗത്തിൽ ചോദിച്ചു രദ്ദേഷ്ടങ രാജ്യം സാമ്പത്തിക അടിയന്തിരാവസ്ഥയ്ക്ക് സ്മാനമായ സ്ഥിതി നേരി ടുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പർാജയങ്ങളിൽനിന്ന് ജനങ്ങ ളുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് പാർട്ടി വക്താവ് അഭിഷേക് സിംഗ്വി ന്യൂഡൽഹിയിൽ പറഞ്ഞു

സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകരുകയാണെന്നും സാമ്പത്തിക കമ്മി വർദ്ധി ക്കുകയാണെന്നും അഭിഷേക് സിംഗ്വി ആരോപിച്ചു

രാജ്യത്തിന്റെ വിഭജനത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ പ്രീണനമാണ് ഇത്ര യുംകാലം മുത്തലാഖ് രാജ്യത്ത് തുടരാൻ കാരണമാക്കിയതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു നിയമം മുസ്ലിംങ്ങൾക്കെതിരായ നടപടിയാണെന്ന് ചിലർ ആരോപിക്കുന്നുണ്ടെന്നും എന്നാൽ മുസ്തിംകളുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് നിയമം കൊണ്ടുവന്നതെന്നും അദ്ദേഹം അറിയിച്ചു അവകാശ ങ്ങൾ നിഷേധിക്കപ്പെട്ട കോടിക്കണക്കിന് മുസ്ലിം വനിതകൾക്ക് മുത്തലാഖ് പേടിസ്വപ്നമായിരുന്നുവെന്നും അമിത് ഷാ പറഞ്ഞു

ആറുമാസത്തിനകം വിചാരണാ നടപടികൾ പൂർത്തി യാക്കാൻ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഉത്തരവി ട്ടു

രുട്ട്ട്ട്ട്ട്ട്ട്ട ഉത്തർപ്രദേശിലെ ഉന്നാവിൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്കും ഡ്രൈവർക്കും ഗുരുതര പരിക്കേറ്റ കാറപകടത്തെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കാൻ സുപ്രീംകോടതി സി ബി

ഗുരുതരമായി പരിക്കേറ്റ് ഡൽഹിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകു ട്ടിയുടെയും ഡ്രൈവറുടെയും മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം പൂർത്തിയാക്കാൻ നാലാഴ്ച കൂടി അനുവദിക്കണമെന്നും ആവ ശ്യപ്പെട്ട് സി ബി ഐ നൽകിയ അപേക്ഷയിലാണ് ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത അനിരുദ്ധ ബോസ് എന്നിവരടങ്ങിയ ബഞ്ച് രണ്ടാഴ്ചകൂടി സമയം അനുവദിച്ചത് ചികിത്സയിൽ കഴിയുന്ന അഭിഭാഷകന് അഞ്ചുലക്ഷം രൂപ നൽകാനും ഉത്തർപ്രദേശ് ഗവൺമെന്റിനോട്ട് കോടതി ആവശ്യപ്പെട്ടു

ആറുപേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അല്പ സമയത്തിനകം റഡാർ ഉപയോഗിച്ച് തെരച്ചിൽ ആരംഭിക്കും ദേശീയ ദുരന്ത നിവാരണ സേന ഫയർഫോഴ്സ് പൊലീസ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരാണ് തെരച്ചിൽ നടത്തുന്നത് ഇന്നലെ പുത്തുമല ഏലവയിലിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു

കോഴിക്കോട് താലൂക്കിൽ നാലും വടകര താലൂക്കിൽ രണ്ടും കൃാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കുട്ടനാട്ടിൽ കാലവർഷക്കെടുതിയെ തുടർന്ന് നഷ്ടം സംഭവിച്ച എല്ലാ കർഷകർക്കും അർഹതപ്പെട്ട സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ കുട്ടനാട്ടിൽ പറഞ്ഞു

കഴിഞ്ഞ പ്രളയത്തിൽ നഷ്ടം സംഭ വിച്ച എല്ലാവർക്കും ഗവൺമെന്റ് സഹായം ലഭൃമാക്കിയിട്ടുണ്ടെന്നും വിത്ത ടക്കം വിതരണം ചെയ്യുന്നതിന് ഈ വർഷവും നടപടി സ്വീകരിക്കുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി

ഉച്ചകഴിഞ്ഞ് കർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യും സിനഡ് ദിവസങ്ങളിൽ അൽമായ നേതാക്കളുമായി മെത്രാൻമാർ ചർച്ച് നടത്തും വത്തിക്കാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും സിനഡ് ഓരോ തീരുമാനവും വത്തിക്കാനെ അറിയി ക്കും

എറണാകുളം അങ്കമാലി അതി രൂപതയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് സിനഡിന്റെ പ്രധാന അജണ്ട രുട്ട്ട്ട്ട്ട്ട്ട്ട സന്ന്യാസ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിസ്റ്റർ ലൂസി കള പ്പുരക്കലിനെ അവർ താമസിക്കുന്ന വയനാട് കാരക്കാമല മഠത്തിൽ പൂട്ടിയി ട്ടതായി ആരോപണം ഇന്ന് രാവിലെയായിരുന്നു സംഭവം മഠത്തിനോട് ചേർന്ന പള്ളിയിൽ കുർബാനക്ക് പോകുന്നത് തടയാനാണ് ഇങ്ങനെ ചെയ് തതെന്നും അത്യധികം മനുഷ്യത്വർഹിതമായ സംഭവമാണിതെന്നും സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ പറഞ്ഞു തന്നെ അകാരണമായി പൂട്ടിയിട്ടെന്ന് കാണി ച്ച് സിസ്റ്റർ ലൂസി വെള്ളമുണ്ട പോലീസിൽ പരാതി നൽകി

എം ബഷീർ കൊല്ലപ്പെട്ട കേസിൽ പ്രതിക ളായ ഐ

എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമന്റെയും സുഹൃത്ത് വഫ ഫിറോസിന്റെയും ഡ്രൈവിംഗ് ലൈസൻസ് ഇന്നുതന്നെ റദ്ദാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു

എന്നാൽ ഇക്കാരൃത്തിൽ മനപൂർവ മായ കാലതാമസം ഉണ്ടായോയെന്ന് പരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് സെക്ര ട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു നിയമം അനു ശാസിക്കും വിധം കുറ്റകൃത്യത്തിനെതിരെ പരമാവധി നടപടി ഉണ്ടാകണമെ ന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ട് ഇക്കാര്യത്തിൽ പഴുതടച്ച നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് വ്യക്തമാക്കി

ജി പിക്കും പരാതി നൽകുമെന്ന് കെ

പൊലീ സിന്റെ വീഴ്ച ഡോക്ടറുടെ തലയിൽ കെട്ടിവെയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു ശ്രീറാമിന്റെ കേസിൽ നിയ മപ്രകാരം എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്തിട്ടുണ്ടെന്നും രേഖാമൂലം പൊലീസ് ആവശ്യപ്പെട്ടാൽ മാത്രമേ രക്തപരിശോധന നടത്താനാവൂ എന്നും അദ്ദേഹം വൃക്തമാക്കി പൊലീസ് രക്തപരിശോധന നടത്താൻ ആവശ്യപ്പെട്ട ട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം പറഞ്ഞു മദ്യ്ത്തിന്റെ മണമു ണ്ടെന്ന് ഒ

എന്നാൽ വാക്കാൽപോലും രക്തപരിശോധനക്ക് പൊലീസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കെ

എ സെക്ര ട്ടറി പറഞ്ഞു

കഴിഞ്ഞ മഴയിലാണ് പെരുമ്പാടിക്കും മേമനക്കൊല്ലിക്കും ഇടയിൽ റോഡ് ഇടിഞ്ഞുതാഴ്ന്നത് ഇതേ ത്തുടർന്ന് വാഹന ഗതാഗതം പൂർണമായും നിരോധിച്ചിരുന്നു വാഹനങ്ങൾ മാനന്തവാടി വഴിയാണ് തിരിച്ചുവിട്ടത് ഇന്ന് വൈകീട്ടോടെ ചെറുവാഹന ങ്ങൾ ഇതുവഴി കടത്തിവിടും

ഔറംഗാബാദിലേക്ക് പോവുകയായിരുന്ന മഹാരാഷ്ട്ര സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് ദർവ്വഹി കോഴിക്കോട് പയിമ്പ്രയിൽ മിനിവാൻ അപകടത്തിൽപെട്ട് ആറ് കുട്ടികൾക്ക് പരുക്കേറ്റു പയിമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ് കൂളിൽ നിന്ന് ഫർണ്ണീച്ചർ സാമഗ്രികളുമായി മടങ്ങുകയായിരുന്ന വാൻ മറിഞ്ഞാണ് അപകടം രാവിലെ ഒമ്പതരയോടെയായിരുന്നു സംഭവം ഒരു കുട്ടിയുടെ പരുക്ക് ഗുരുതരമാണ്

നാട്ടുകാരും ഫയർഫോഴ് സുമെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്

ദർവ്വട്ടെഴ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് എട്ട് കിലോ സ്വർണ്ണം പിടിച്ചെടുത്തു ദുബായിയിൽ നിന്നും ഷാർജയിൽ നിന്നും എത്തിയ മൂന്നു യാത്രക്കാരിൽ നിന്നാണ് സ്വർണ്ണം പിടിച്ചെടുത്തത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻറലിജൻസ് അധികൃതരാണ് സ്വർണ്ണം പിടിച്ചെടുത്തത്

ട്രോളി ബാഗിൽ പ്രത്യേക അറയുണ്ടാക്കി പണം കടത്താനായിരുന്നു ശ്രമം ദുബായിലേക്ക് പോകു വാനെത്തിയപ്പോഴാണ് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഇയാളെ പിടികൂടിയ ത് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട രൂക്ഷമായ പ്രളയകെടുതി നേരിട്ടു ജില്ലകളിലെങ്കിലും പാദ വാർഷിക പ രീക്ഷ മാറ്റിവെക്കാൻ ഗവൺമെന്റ് തയ്യാറാവണമെന്ന് കേരള അറബിക് ടീ ച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു ഉരുൾപൊട്ടലും പ്രളയവും മൂലം ഉറ്റവരെ നഷ്ടപ്പെട്ടും വീടു കൾ തകർന്നും പാഠപുസ്തകങ്ങൾ അടക്കം പഠനോപകരണൾ നഷ്ടപെട്ടും മാനസിക സംഘർഷമനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉടനെ ഒരുപരീക്ഷ നടത്തുന്നത് ക്രൂരതയാണെന്ന് യോഗം വിലയിരുത്തി രദ്ദേഷ്ടങ ഗുരുവായൂർ ദേവസ്വം അഞ്ചുകോടി രൂപ പ്രളയ ദുരിതാശ്വാസത്തിന് സംഭാവന ചെയ്തത് ദേവസ്വം ചട്ടം ലംഘിച്ചാണെന്ന ഹർജി ഇന്ന് ഹൈക്കോ ടതി പരിഗണിക്കും